നടത്തണമെന്ന ഗവർണറുടെ ന്റിർദ്ദേശം തള്ളി സഭ ഇന്നത്തേയ്ക്ക് പിരിഞ്ഞു

ഇടപെടൽ തുടരാൻ സുപ്രീംകോടതിയുടെ അനുമതി

ഇന്ത്യയുടെ പി

സിന്ധു ക്വാർട്ടർ ഫൈനലിൽ

വോട്ടെടുപ്പ് ഇന്നുതന്നെ പൂർത്തിയാക്കണമെന്ന് ഗവർണർ വാജുബായ്വാല സ്പീക്കർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും സഭ ഇത് തള്ളി

വിശ്വാസപ്രമേയത്തിന്മേലുള്ള ചർച്ച നാളെയും തുടരും വോട്ടെടുപ്പ് ഇന്നുതന്നെ നടത്തണമെന്ന ഗവർണറുടെ സന്ദേശം സ്പീക്കർ സഭയിൽ വായിച്ചു

അതേസമയം ഗവർണറുടെ നിർദ്ദേശം പാലിക്കണമെന്ന് ബി ജെ

ഇന്നുതന്നെ വിശ്വാസവോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണർ ശുപാർശ നൽകിയെങ്കിലും കൂടുതൽ അംഗങ്ങൾക്ക് പ്രമേയത്തെ അധികരിച്ച് സംസാരിക്കാനുണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് വിശ്വാസവോട്ടെടുപ്പ് വൈകിപ്പിക്കരുതെന്ന് ആവശ്യവുമായി നേരത്തെ ബി

പി അംഗങ്ങൾ ഗവർണറെ സന്ദർശിച്ചിരുന്നു വാദപ്രതിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി കുമാരസ്വാമി സഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു ഒരു ദിവസം കൊണ്ട് ചർച്ച പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ബി

എന്നാൽ വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന് കോൺഗ്രസ് സ്പീക്കറോട് ആവശ്യപ്പെട്ടു വിശ്വാസ പ്രമേയ ചർച്ചക്കിടെ പാർലമെന്ററി പാർട്ടി നേതാവ് സിദ്ധാരാമയ്യ ക്രമപ്രശ്നം ഉന്നയിച്ചു വിമത എം എൽ എമാർ സമർപ്പിച്ച ഹർജിയിന്മേൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഇടക്കാല വിധിയിൽ അവ്യക്തതയുണ്ടെന്ന് സിദ്ധാരാമയ്യ പറഞ്ഞു കോൺഗ്രസും ജെ ഡി എസും വിമതർ ഉൾപ്പെടെയുള്ള മുഴുവൻ എം എൽ എമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്

എൽ എമാരുടെ രാജിയോടെ കുമാരസ്വാമി ഗവൺമെന്റ് ന്യൂനപക്ഷമായിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഗവൺമെന്റ് വോട്ടെടുപ്പിൽ പരാജയപ്പെടാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിയന്ന കരാർ പാകിസ്ഥാൻ ലംഘിച്ചതായി കോടതി കണ്ടെത്തിയതായും വിദേശമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു കോടതിയുടെ വിധിയനുസരിച്ച് കുൽഭൂഷൻ ജാധവിനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു നിയമപരമായ നടപടികൾ ഇന്ത്യ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി

റിപ്പോർട്ട് ലഭീച്ചശേഷം തുടർനടപടികൾ തീരുമാനിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് അടുത്തമാസം രണ്ടിന് കേസ് വീണ്ടും പരിഗണിക്കും

മധ്യസ്ഥ സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് ഖലീഫുള്ള കമ്മിറ്റി ഇടക്കാല റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം രഹസ്യമായി സൂക്ഷിക്കുമെന്ന് കോടതി പറഞ്ഞു

അസ്സം പശ്ചിമബംഗാൾ ഒഡീഷ ഝാർഖണ്ഡ് ഉത്തർപ്രദേശ് ത്രിപുര മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി ബേസിൽ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ പതിനാറ് വ്യത്യസ്ത കമ്പനികളുടെ ഫാക്ടറികളും ഹോട്ടലുകളും ഉൾപ്പെട്ട വസ്തുവകകളാണ് കണ്ടുകെട്ടിയത് ആദായ വർദ്ധന വാഗ്ദാനം ചെയ്ത് നിയമപരമല്ലാത്ത പദ്ധതികൾ പ്രചരിപ്പിച്ച് ആളുകളെ ചതിച്ചതിന് സി ബി ഐ കമ്പന്ടൂയ്ക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നട്ടത്തിയ് അന്വേഷണത്തിലാണ് ഇ

ഇത്തരത്തിൽ സ്പ്രൂപിച്ച പണമുപയോഗിച്ച് രൂപീകരിച്ച അറുപതിലധികം വൃദ്ജൂ കമ്പനികളെ കണ്ടെത്തിയതായും എൻഫ്ട്രൂഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു

രാജ്യത്തിനകത്ത് ഉണ്ടാകുന്ന റവന്യൂ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ കമ്പനികൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള പുതിയ നിയമം ഫ്രഞ്ച് പാർലമെന്റ് ഈ മാസം ആദ്യം പാസ്സാക്കിയിരുന്നു അമേരിക്കൻ ഡിജിറ്റൽ ഭീമൻമാരായ ഗൂഗിൾ ആപ്പിൾ ഫെയ്സ് ബുക്ക് ആമസോൺ എന്നിവയെ നിയമം ബാധിക്കും വിഷയത്തിൽ ഫ്രാൻസിനെതിരെ നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ദ്രവീകൃത പ്രകൃതി വാതക ഇറക്കുമതിയിൽ വൻ അഴിമതി നടത്തിയതായാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ദേശീയ അക്കൌണ്ടബിലിറ്റി ബ്യൂറോയാണ് അബ്ബാസ്ട്രിയെ കസ്റ്റഡിയിൽ എടുത്തത്

ഇറക്കുമിൽ ചെയ്യുന്ന കരാറിൽ അഴിമതി നടത്തിയതായാണ് കേസ്ക്ക് പാകിസ്ഥാൻ മുൻപ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും വ്യാജ് ബാങ്ക് അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട കേസിൽ എൻ

ഇതാദ്യമായല്ല ഹഫീസ് സയീദ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നും ഇത്തവണ സയീദിനെ വിസ്തരിച്ച് ശിക്ഷാനടപടികളെടുക്കുമോ എന്ന് കാണേണ്ടതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ പാകിസ്ഥാന്റെ സത്യസന്ധത തെളിയിക്കണമെന്നും ശ്രീ രവീഷ്കുമാർ പറഞ്ഞു

ഡിജിറ്റൽ പണമിടപാടുകൾ വർഷം തോറും വർദ്ധിക്കുകയാണെന്ന് രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു

ഐ ആധാർ പേ ഇടപാടുകൾ ഗവൺമെന്റ് സൌജന്യമാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ പണമിടപാടുകളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനായി ഭീം ക്യാഷ് ബാക്ക് സ്കീം ഉൾപ്പെടെ വിവിധ പ്രോത്സാഹന പദ്ധതികൾ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു

ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണമുയർന്നതിനെത്തുടർന്ന് കേസ് സി ബി

കരസേനയ്ക്ക് പുറമെ ആസാം റൈഫിൾസിനും മണിപ്പൂർ പോലീസിനുമാണ് പ്രത്യേക അധികാരങ്ങൾ ഉണ്ടായിരുന്നത്

സ്വന്തം കർത്തവൃങ്ങൾ നിർവഹിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ ആവില്ലെന്നാണ് കോടതിയുടെ നിലപാട് തമിഴ്നാട് മന്ത്രിസഭാ സമിതി കേസിലെ പ്രതികളെ കാലാവധി തീരുംമുമ്പേ വിട്ടയയ്ക്കാൻ ശുപാർശ നൽകിയിരുന്നു ഇതനുസരിച്ചാണ് ഗവർണർക്ക് കോടതി നിർദ്ദേശം നൽകണമെന്ന അപേക്ഷയുമായി പ്രതി നളിനി ഹൈക്കോടതിയിൽ എത്തിയത്

മോഹൻ ഗുപ്തയുടെ ജാമ്യം റദ്ദുചെയ്യണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി

സിന്ധു ഇന്തോ്നേഷ്യൻ ഓപ്പൺ വനിതാ സിംഗിൾസിന്റെ കാർട്ടർ ഫൈന്ലിൽ കടന്നു ഡാനിഷ്താരം മിയ ബ്ലിച്ച്ഫെൽറ്റിനെ ഒന്നിനെത്തിരു രൂണ്ട് സെറ്റുകൾക്കാണ് സിന്ധു പരാജയപ്പെടുത്തിയത്

പുരുഷ ഡബിൾസിൽ സത്വിക് സായ്രാജ് രൺഗിറെഡ്ഡി ചിരാഗ്ഷെട്ടി സഖ്യം ഇന്തോനേഷ്യൻ ടീമിനോട് പരാജയപ്പെട്ടു